എത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ രാജ്യത്തെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ ലോക ശ്രദ്ധ നേടുകയാണെന്നും പ്രധാനമന്ത്രി

രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് സിക്കിമിൽ ന് ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ഒരു പദ്ധതിയും ഉദ്ഘാടനം ചെയ്തു

ആഘോഷിക്കുന്നു ആശംസകളറിയിച്ച് രാഷ്ട്ര നേതാക്കൾ

പോരാട്ടം ബാംഗ്ലൂരുവും ചെന്നൈയും തമ്മിൽ രണ്ടാം മത്സരത്തിൽ രാജസ്ഥാൻ മുംബൈയെ നേരിടും

പൂർവികർ ഇതാണ് ചെയ്തിരുന്നതെന്ന് ആചാര്യ ശങ്കാരാചാര്യരെ ഉദ്ധരിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു

പുതിയ കാർഷിക നിയമത്തിൽ കർഷകർക്ക് അനുകൂലമായ നിരവധി മാറ്റങ്ങളുണ്ടെന്ന കാര്യം അവർക്ക് മനസിലാക്കാനാവുന്നുണ്ട് ലോകമെമ്പാടുമുള്ളവർ ഇന്ത്യയിലെ പ്രാദേശിക ഉത്പന്നങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് നമ്മുടെ ഖാദി ഇന്ന് പരിസ്ഥിതി സൌഹൃദ ഉത്പന്നമായാണ് ലോകമൊട്ടുക്ക് ശ്രദ്ധിക്കപ്പെടുന്നത് ആഘോഷവേളകളിൽ വിപണികളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ പ്രാദേശിക ഉത്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു കൊറോണയുടെ ആപത്ഘട്ടത്തിൽ ആഘോഷങ്ങളും ഉത്സവങ്ങളും നിയന്ത്രണങ്ങളോടെ ആകണമെന്നും ഈ അവസരത്തിൽ രാജ്യരക്ഷയ്ക്കായ് അതിർത്തികാക്കുന്ന ജവാൻമാരെ ഓർക്കണമെന്നും അവർക്കായി ഒരു ദ് ദീപം തെളിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഇതിൽ പകുതിയിലേറെ നാല് സംസ്ഥാനങ്ങളിൽ നിന്നാണെന്നും മന്ത്രാലയം ട്വിറ്ററിൽ കുറിച്ചു

അതിർത്തി പോസ്റ്റുകളിലെ സൈനികരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി

കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെ അദ്ദേഹത്തെ അനുഗമിച്ചു

നാളെയാണ് വിജയദശമി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു ഇന്ത്യയുടെ സാംസ്കാരിക ഒരുമയ്ക്ക് മാറ്റുകൂട്ടുന്നതിനൊപ്പം നന്മയുടെ പാതയിൽ ഒത്തൊരുമയോടെ കഴിയാൻ ആഘോഷം പ്രചോദനമേകുമെന്ന് രാപ്രഷ്ടപതി സന്ദേശത്തിൽ അറിയിച്ചു അതേസമയം ദസറ ആഘോഷങ്ങളിൽ ജനങ്ങൾ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ഉപരാഷ്ട്രപതി സന്ദേശത്തിൽ വ്യക്തമാക്കി തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തിന്റെ ഓർമപ്പെടുത്തലാണ് ദസറയെന്നും ഉത്തമപുരുഷനായ ശ്രീരാമന്റെ ഉദാത്ത ജീവിതമാണ് ആഘോഷം ഓർമിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ പ്രചാരണങ്ങളും റോഡ് ഷോയും സംഘടിപ്പിക്കുന്നുണ്ട്

ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിന് ശേഷം ട്ടേബ്ൾ ടെന്നീസിനായുള്ള ആദ്യ ദേശീയ ക്യാമ്പാണിത്

എൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ ദുബായിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ബാംഗ്ളൂരുവിനെ ചെന്നൈ നേരിടും

ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹിയെ തോൽപ്പിച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പട്ടികയിൽ നാലാം സ്ഥാനം ഉറപ്പിച്ചു രണ്ടാം മത്സരത്തിൽ ഹൈദരാബാദിനെ പരാജയപ്പെടുത്തി പഞ്ചാബ് പട്ടികയിൽ അഞ്ചാം സ്ഥാനം നേടി

കേന്ദ്ര ഭരണ പരിഷ്കാര പരാതി പരിഹാര വകുപ്പും ജമ്മു കാശ്മീർ ഭരണകൂടവുമായി സഹകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്

രണ്ട് കോടിയിൽ താഴെ വരുമാനമുള്ളവർക്കാണ് വാർഷിക തിരിച്ചടവ് ഫയൽചെയ്യാനുള്ള സൌകര്യമുള്ളത് അഞ്ച് കോടിയിലധികം വാർഷിക വരുമാനമുള്ള നികുതിദായകർക്കും റികൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് സമർപ്പിക്കാനുള്ള അവസരമുണ്ട്

ഇന്നലെ ഫ്ളോറിഡ്യിലെ വെസ്റ്റ് പാമിൽ ട്രംപ് തന്റെ സമ്മതിദാനം രേഖപ്പെടുത്തി്